വിഷയമാണെന്ന നിലപാടിനെ പ്രിശ്രംസിച്ച് യു

ലണ്ടനിലെ ഇന്ത്യൻ സ്ഫാന്പതി കാര്യാലയത്തിനു മുന്നിൽ ന് ഇന്ത്യക്കാർക്കു നേര്രിയുണ്ടായ അതിക്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ്ട് പ്രധാനമന്ത്രിയോട് ആശങ്ക പ്രകടിപ്പിച്ചു

എക്സ് മീഡിയ അഴിമതി കേസിൽ സി ബി

മുന്നിൽ ഹാജരാകാൻ മുൻ കേന്ദ്രമന്ത്രി പി

ഇന്തൃയുടെ പുരുഷ വനിതാ ഹോക്കി ടീമുകൾ ഫൈനലിൽ

കൂടുതൽ പ്രദേശങ്ങളിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതോടെ കാശ്മീർ താഴ്വര സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തി പ്രൈമറി സ്കൂളുകളിലെ ഹാജർനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഗവൺമെന്റ് വക്താവ് രോഹിത് കൻസാൽ മാധ്യമങ്ങളോട് പറഞ്ഞു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരം ഇന്ന് മുതൽ മിഡിൽ സ്കൂളുകളും തുറക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്

എസ് പ്രതിരോധ സെക്രട്ടറി ഡോ

എസ്പർ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്

സമാധാനം നിലനിർത്താനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് യു

ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാനാകുമെന്ന് ഡോ എസ്പർ പ്രത്യാശ പ്രകടിപ്പിച്ചു

എസ് ദില്ലൺ എന്നിവർ ഇന്നലെ കശ്മീർ താഴ്വര സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി നിയന്ത്രണരേഖയിൽ സൈന്യം നടത്തുന്ന അക്ഷീണ പ്രവർത്തനങ്ങളെ ലഫ്റ്റനന്റ് ജനറൽ സിംഗ് പ്രശംസിച്ചു അടിയന്തര സാഹചര്യമുണ്ടായാൽ അത് നേരിടാൻ സജ്ജരായിരിക്കണമെന്ന് സേനയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു സുരക്ഷാസേനകളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു

സംഭവത്തിൽ ബോറിസ് ജോൺസൺ ഖേദം പ്രകടിപ്പിച്ചെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പുനൽകിയെന്നും പ്രധാനമന്ത്രിടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു സ്ഥാനപതി കാര്യാലയത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അറിയിച്ചു

തീവ്രവാദവും അസഹിഷ്ണുതയും സൃഷ്ടിക്കുന്ന ഭീഷണിയെ നേരിടാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഉയർത്തിക്കാട്ടി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി സന്നദ്ധത അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജലസംരക്ഷണം വിവേകത്തോടെയുള്ള ഉപയോഗം പുനർ വിനിയോഗം സാങ്കേതിക വിദ്യയുടെ പ്രയോഗം തുടങ്ങിയ നടപടികൾ രാജ്യം പിന്തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈയിൽ ആഗോള നിക്ഷേപക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നദീ സംയോജന പദ്ധതിയിൽ നല്ല പുരോഗതിയുണ്ടെന്നും പ്രളയവും വരൾച്ചയും നേരിടാൻ ഇത് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതോടെ ചന്ദ്രയാൻ ദൌതൃത്തിലെ ഒരു പ്രധാന കടമ്പ കടന്നതായി ഐ എസ് ആർ ഒ ചെയർമാൻ ഡോ

എസ് ആർ ഒ സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ട്ടിറ്ററിലൂടെ അഭിനന്ദനം അറിയിച്ചിരുന്നു

ഇന്ത്യ നേപ്പാൾ സംയുക്ത കമ്മീഷന്റെ അഞ്ച് യോഗങ്ങളിൽ അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് പങ്കെടുക്കും നേപ്പാൾ വിദേശകാര്യമന്ത്രി പ്രദീപ് കുമാർ ഗ്യാവാലിയും യോഗത്തിൽ പങ്കെടുക്കും സാമ്പത്തിക പങ്കാളിത്തം വ്യാപാരം ജലവിഭവം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും

കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

പുഴകളുടെ സ്വഭാവിക ഒഴുക്ക് തടയുന്ന വിധത്തിലുള്ള നടപടികൾ അനുവദിക്കുകയില്ല കണ്ണൂരിൽ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മൂടിക്കിടക്കുന്ന ഓടകൾ വൃത്തിയാക്കുന്നതിനും ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള നിർമിതികളും മറ്റും നീക്കം ചെയ്യാനും നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ ടി

എക്സ് മീഡിയ കേസിൽ സി ബി ഐ യ്ക്ക് മുന്നിൽ ഹാജരാകാൻ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന് നോട്ടീസ്

ഇന്നലെ വൈകിട്ട് സിബിഐ ഉദ്യോഗസ്ഥർ ജോർബാഗിലെ ചിദംബരത്തിന്റെ വീട്ടിലെത്തിയെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല തുടർന്ന് സി ബി

എസ് പി ആർ പാർത്ഥസാരഥിക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സിബിഐ ഉദ്യോഗസ്ഥർ ചിദംബരത്തിന്റെ വസതിയിൽ നോട്ടീസ് പതിച്ചു അറസ്റ്റ് ഒഴിവാക്കണമെന്ന ചിദംബരത്തിന്റെ ആവശ്യം നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു

ബി ഐ എഫ് ഐ

ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തെ ഇതേ കേസിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തിരുന്നു

ജെ പി കർണാടക സംസ്ഥാന അധ്യക്ഷനായി നളിൻകുമാർ കട്ടീൽ എം പിയെ പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നിയമിച്ചു

ദേഹാസ്വാസ്ഥ്യം ശ്വാസതടസ്സം തുടങ്ങിയ അസുഖങ്ങൾ മൂലം ഈ മാസം ഒൻപതിനാണ് ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൌൺസിൽ മഹാരാഷ്ട്രയിലെ അംരാവതിയിൽ സംഘടിപ്പിച്ചു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികൾക്കു മേൽ പഠനഭാരം അമിതമായി അടിച്ചേൽപ്പിക്കരുതെന്നും കായിക മൽസരങ്ങളിൽ പങ്കെടുക്കാൻ അവർക്ക് പ്രോത്സാഹനം നൽകണമെന്നും മന്ത്രി പറഞ്ഞു

എന്നാൽ ആണവ നിരായുധീകരണം സംബന്ധിച്ച് ചർച്ച തുടരാൻ താൽപ്പര്യമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഏതാനും ആഴ്ചകളായി ഉത്തരകൊറിയ നടത്തുന്ന ഹ്രസ്വ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളെ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് നിസ്സാരവൽക്കരിച്ചതായി യു

ട്രംപും ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ്ങ് ഉന്നുമായി നടക്കാനിരിക്കുന്ന മൂന്ന് മുഖാമുഖ ചർച്ചകൾക്ക് ശേഷം ആണവ നിരായുധീകരണം സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പോപെ അറിയിച്ചു

മൻദീപ് സിംഗ് ഹാട്രിക് നേടിയപ്പോൾ നീലകാന്ത ശർമ്മ നീലം സഞ്ചീപ് ഗുർജന്ത് സിംഗ് എന്നിവർ ഓരോ ഗോൾ വീതം നേടി

അതേസമയം ഓസ്ട്രേലിയയ്ക്കെതിരെ ഉജ്ജല പ്രകടനം കാഴ്ചവച്ച വനിതാ ഹോക്കി ടീം പോയിന്റ് പട്ടികയിൽ ഒന്നാമതായാണ് ഫൈനലിൽ പ്രവേശിച്ചത് അവസാന റൌണ്ട് റോബിൻ മത്സരത്തിൽ ചൈനയ്ക്കെതിരെ ഗോൾരഹിത സമനില പിടിച്ച ഇന്ത്യ മൂന്നു മത്സരങ്ങളിൽ നിന്ന് അഞ്ച് പോയിന്റ് സ്വന്തമാക്കി ആതിഥേയരായ ജപ്പാനാണ് ഇന്ന് നടക്കുന്ന ഫൈനലിൽ എതിരാളി

അഞ്ച് തവണ ലോകചാമ്പ്യനായിരുന്ന ലിൻ ഡാനെ തോൽപിച്ചാണ് സായി പ്രണീത് അടുത്ത റൌണ്ടിലേയ്ക്ക് കടന്നത് ഒന്നാം റൌണ്ടിൽ കനേഡിയൻ താരം ജാസൺ ആന്റണി ഹോ ഷൂവിനെ പരാജയപ്പെടുത്തിയിരുന്നു പ്രീ ക്വാർട്ടർ മത്സരത്തിനായി സായി പ്രണീത് ഇന്നിറങ്ങും

നിലവിലെ സ്ഥിതിഗതികളും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ക്യാബിനെറ്റ് സെക്രട്ടറി പി